കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ വിപ്പ് ലംഘിക്കുന്നവരെ അയോഗൃരാക്കുമെന്ന് മുന്നറിയിപ്പ് ആധാർ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി

നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ രണ്ട് പേർ കൂടി അറസ്റ്റി ലായി

ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമി ഫൈനൽ ഇന്ന് ഇന്ത്യ ന്യൂസി ലാന്റിനെ നേരിടും ൾ ൽ ൾ കർണാടകത്തിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഇന്ന് നിർണായക തീരുമാനങ്ങളുണ്ടായേക്കും രാജിവെച്ച വിമത കോൺഗ്രസ് ജന താദൾഎസ് എംഎൽഎമാരുടെ നടപടിയിൽ സ്പീക്കറുടെ തീരു മാനം ഇന്നുണ്ടാകുമെന്നാണ് സൂചന രാവിലെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്ക ണമെന്ന് പാർട്ടിയിലെ എല്ലാ എംഎൽഎമാർക്കും കോൺഗ്രസ് വിപ്പ് നൽകി ഇത് ലംഘിക്കുന്നവരെ അയോഗൃരാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ മനപ്പൂർവ്വം ശ്രമിച്ചെ ന്നാരോപിച്ചായിരിക്കും നടപടി അതിനിടെ കർണാടക മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഇന്നലെ രാജിവെച്ചു വിമത എംഎൽഎമാരെ ഉൾപ്പെടുത്തി മന്ത്രിസഭ വിക സിപ്പിക്കാൻ എച്ച്

കുമാരസ്വാമിക്ക് ഇരുപാർട്ടികളും അധികാരം നൽകി സഖ്യ ഗവൺമെന്റിനെ അട്ടിമറിക്കാനും രാഷ്ട്രീയ കുതിര കച്ചവടം നടത്താനും ഗവർണർ കൂട്ടുനിൽക്കുകയാണെന്ന് ഉപമുഖ്യ മന്ത്രി ജി

ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുന്ന കാര്യത്തിൽ ബിജെപിയും ഇന്ന് തീരുമാനമെടുത്തേക്കും

ആധാർ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി ബാങ്ക് അക്കൌ ണ്ടുകൾക്കും മൊബൈൽ കണക്ഷനും തിരിച്ചറിയൽ രേഖയായി സ്വമേധയാ ആധാർ ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതാണ് ഭേദ ഗതി ബിൽ ആധാർ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സ്ഥകാര്യ സ്ഥാപന മേധാവികൾക്ക് ഒരു കോടി രൂപ പിഴയും തടവ് ശിക്ഷയും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് സമഗ്രമായ ഡാറ്റാ സുരക്ഷാ നിയമം വൈകാതെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ബിൽ ചർച്ചക്ക് മറുപടി പറഞ്ഞ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് അറിയിച്ചു ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ഗുണഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിൽ ആധാറിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതാണെന്നും രവിശങ്കർ പ്രസാദ് വില യിരുത്തി പാലക്കാട് മലമ്പുഴ മന്തക്കാടിൽ നിർമ്മിച്ച ജില്ലാ ജയിൽ മുഖ്യ മന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും പാലക്കാട് കോട്ടക്കുള്ളിലെ ജയിൽ മന്തക്കാട്ടേക്ക് മാറ്റും

മന്ത്രിമാരായ എ

ബാലൻ ജി സുധാ കരൻ കെ

ശൈലജ ടി

രാമകൃഷ്ണൻ ഭരണപരിഷ്ക്കാര കമ്മീ ഷൻ ചെയർമാൻ വി

അച്യുതാനന്ദൻ തുടങ്ങിയവർ പരിപാടി യിൽ പങ്കെടുക്കും നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ എഎസ്ഐ റജിമോൻ ഡ്രൈവർ നിയാസ് എന്നിവരെ കൂടി അറസ്റ്റ് ചെയ്തു രാജ്കുമാ റിനെ മൂന്നാംമുറക്ക് വിധേയനാക്കിയത് ഇവരാണെന്നാണ് ക്രൈംബ്രാ ഞ്ചിന്റെ കണ്ടെത്തൽ ഏഴ് പൊലീസുകാർ രാജ്കുമാറിനെ മർദിച്ചെ ന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ എന്നാൽ കൂടുതൽ പൊലീ സുകാർക്ക് മർദനത്തിൽ പങ്കുണ്ടെന്ന് സാക്ഷികളായ ശാലിനിയും മഞ്ജുവും വെളിപ്പെടുത്തി

കൊച്ചിയിൽ മന്ത്രി സി രവീന്ദ്രനാഥ് സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി എ

മൊയ്തീൻ അറിയിച്ചു പണി പൂർത്തിയാ ക്കിയ വീടുകളുടെ താക്കോലുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും

മന്ത്രിമാരായ ടി

രാമകൃഷ്ണ നും എ

ശശീന്ദ്രനും സംഗമത്തിൽ പങ്കെടുക്കും വയനാട് ജില്ലാതല പരിപാടിക്ക് രൂപം നൽകാൻ ജില്ലാ കലക്ട റുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു

ഷാനവാസ് അറിയിച്ചു

പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് ഈ സാമ്പത്തിക വർഷം അവസാനം വരെ സഹായം ലഭ്യമാക്കുന്ന ഗവൺമെന്റ് ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു പദ്ധതി അവസാനിച്ചതിന്റെ പേരിൽ ഒരാൾക്ക് പോലും ചികിത്സ മുടങ്ങാതി രിക്കാൻ ആശുപത്രികൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദേശിച്ചു കോട്ടയം ജില്ലയിലെ വില്ലേജ് ഓഫീസുകൾ കറൻസി രഹിതമാ ക്കുന്നതിന്റെ ഭാഗമായി ഈപോസ് മെഷീനുകൾ ഇന്ന് വിതരണം ചെയ്യും കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി ഇ ചന്ദ്രശേഖ രൻ വിതരണം ഉദ്ഘാടനം ചെയ്യും

മൂന്ന് തല മുറകളായി വനഭൂമി കൈവശംവെച്ച് അനുഭവിക്കുന്നവരാണിവർ വില്ലേജ് ഓഫീസുകളിൽ എത്തുന്നവരോട് ജീവനക്കാർ മാതൃ കാപരമായി പെരുമാറണമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ആലപ്പുഴയിൽ നിർദേശിച്ചു

വള്ളി ക്കുന്നം സ്മാർട്സ് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി

സൂരജിന്റേയും കുടുംബാംഗങ്ങളുടേയും സ്വത്ത് കണ്ടുകെട്ടാൻ മൂവ്വാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടു

പിഎസ്സി അഡൈസ് മെമ്മോ ഇനി മുതൽ ഉദ്യോഗാർത്ഥി കൾക്ക് നേരിട്ട് വിതരണം ചെയ്യാൻ പബ്ലിക് കമ്മീഷൻ തീരുമാനി ച്ചു തപാൽ വഴി നിയമ ശുപാർശ അയക്കുന്ന രീതി അവസാനിപ്പി ക്കാൻ പിഎസ്സി യോഗം തീരുമാനിക്കുകയായിരുന്നു ഇത്തരം മെമോകൾ ഉദ്യോഗാർത്ഥികൾക്ക് പലപ്പോഴും ലഭിക്കുന്നില്ലെന്ന പരാതി കണക്കിലെടുത്താണ് നടപടി

ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമി ഫൈനലിൽ ഇന്ത്യ ന്യൂസി ലാന്റ് പോരാട്ടം ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഓൾഡ് ട്രഫോഡിലാണ് മത്സരം

നാലാം സ്ഥാനക്കാരായാണ് ന്യൂസിലാന്റ് സെമിയിലെത്തിയത് രണ്ടാം സെമി യിൽ മറ്റന്നാൾ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഏറ്റമുട്ടും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരിച്ച് കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടക്കുകയാണെന്നും സാംസ്കാരിക പ്രവർത്തകർ അതിനെ ഒന്നുചേർന്ന് തോൽപ്പിക്കണമെന്നും മന്ത്രി എ

ബാലൻ ആവശ്യ പ്പെട്ടു കോഴിക്കോട് കോട്ടൂർ പഞ്ചായത്തിലെ അവിടനല്ലൂരിൽ എൻ

കക്കാട് സ്മാരകത്തിന് തറക്കല്ലിടുകയായിരുന്നു മന്ത്രി കക്കാ ടിന്റെ ഭാര്യ ശ്രീദേവി കക്കാടും ചടങ്ങിൽ പങ്കെടുത്തു ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കുന്ന തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ നിയോജക മണ്ഡ ലത്തിൽ വിദ്യാലയങ്ങൾക്ക് സ്റ്റീൽ പ്ളേറ്റും ഗ്ലാസുകളും ബക്കറ്റു കളും വിതരണം ചെയ്തു മന്ത്രി പ്രൊഫ

രവീന്ദ്രനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു

പ്രസേനൻ എംഎൽഎയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ദിശ യുടെ ഭാഗമായി സ്റ്റീൽ പ്ളേറ്റും ഗ്ലാസും വിതരണം ചെയ്തത് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പൊലീസ് സ്പെഷ്യൽ സ്കാഡ് യുവാവിനെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ ഒരു ലക്ഷം രൂപ നഷ്ട പരിഹാരം നൽകണമെന്ന സിംഗിൾ ബഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു വയനാട് സ്വദേശിയും മുൻ ഹൈക്കോ ടതി ജഡ്ജിയുടെ മകനുമായ ശ്യാം ബാലകൃഷ്ണന്റെ പരാതിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധി കള്ള് ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനാ നേതാക്കളുമായി ഇന്ന് പാലക്കാട്ട് മന്ത്രിതല ചർച്ച നട ത്തും മന്ത്രി ടി

വൈകീട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി നിർമ്മിച്ച അപ്നാ ഘർ പാർപ്പിട സമുച്ചയം മന്ത്രി സന്ദർശിക്കും താമരശേരി ചുരത്തിൽ ഇന്നലെ വൈകീട്ടുണ്ടായ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസപ്പെട്ടു രണ്ടാം വള വിനും ചിപ്പിലിത്തോടിനും ഇടയിലായിരുന്നു റോഡിനു കുറുകെ മരം വീണത് ഫയർഫോഴ്സ് എത്തിയാണ് മരം മാറ്റി ഗതാഗതം പുനസ്ഥാപിച്ചത്

വനം ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഇന്നലെ പകൽ മുഴുവൻ നട ത്തിയ പരിശ്രമത്തിനൊടുവിലാണ് വൈകീട്ടോടെ ആനകൾ കാട്ടി ലേക്കു മടങ്ങിയത് കൊച്ചിയിൽ ഗോശ്രീ ഒന്നാം പാലത്തിനു താഴെ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് വഞ്ചിമറിഞ്ഞ് ഇന്നലെ ഒരാളെ കാണാതാ യി രണ്ടുപേർ രക്ഷപ്പെട്ടു ഫയർഫോഴ്സിന്റെ സ്കൂബാ ടീം സ്ഥലത്ത് എത്തിയെങ്കിലും ശക്തമായ അടിയൊഴുക്കും ഇരുട്ടും മൂലം തിരച്ചിൽ ഇന്നത്തേക്കുമാറ്റി സംസ്ഥാന വനിതാ കമ്മീഷന്റെ അദാലത്ത് ഇന്ന് രാവിലെ ഇടുക്കി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും കമ്മീഷൻ ചെയർപേഴ്സൺ എം

ജോസഫൈനും കമ്മീഷനംഗം ഷിജി ശിവ ജിയുമാണ് അദാലത്ത് നയിക്കുന്നത് എറണാകുളം ജില്ലാ ലീഗൽ സർവ്വീസസ് അതോറിറ്റിയുടെ ആഭി മുഖ്യത്തിൽ കൊച്ചി സർവ്വകലാശാലയിൽ റാഗിങ്ങ് വിരുദ്ധ ബോധ വൽക്കരണ ക്സാസ് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജ് ഡോ കൌസർ എടപ്പഗത്ത് ഉദ്ഘാടനം ചെയ്തു വൈസ് ചാൻസലർ ഡോ

മധുസൂദനൻ ചടങ്ങിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു സൂര്യ ആയിലൃം എന്നീ പേരുകളിൽ വിറ്റഴിക്കുന്ന വെളിച്ചെണ്ണ ബ്രാൻഡുകളുടെ സംഭരണവും വിതരണവും വിപണനവും നിരോ ധിച്ചതായി കോഴിക്കോട് അസിസ്റ്റന്റ് ഭക്ഷ്യസൂരക്ഷാ കമ്മീഷണർ അറിയിച്ചു നേരത്തെ ഇതേ കമ്പനിയുടെ സുരഭി സൌഭാഗൃ ബ്രാൻഡു കളും നിരോധിച്ചിരുന്നു പീരുമേട് അമ്മച്ചിക്കൊട്ടാരം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊട്ടാരം ട്രസ്റ്റ് ഭാരവാഹികളുമായി ജില്ലാ ഭരണകൂടം ചർച്ച നട ത്തി

ബി ജിമോൾ എംഎൽഎയും ചർച്ചയിൽ പങ്കെടുത്തു ഇടുക്കി ജില്ലാ പൊലീസ് മേധാവിയായി ടി

നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റിയ കെ

വേണുഗോപാലിന് പകരമാണ് നിയമനം കണ്ണൂർ ഇരിട്ടിയിൽ ഇന്നലെ വൈകീട്ട് വീശിയടിച്ച ചുഴലിക്കാ റ്റിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി വീടിനും വാഹനത്തിനും മുകളിൽ മരം കടപുഴകി വീണു ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്